പത്രികാ സമർപ്പണവും ഇന്ന് തുടങ്ങും വാർത്തകൾ വിശദമായി വികസന കാഴ്ചപ്പാടും സത്യസന്ധതയും പുലർത്തുന്നവരെ ജനങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കും എന്നതിന്റെ തെളിവാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയവും മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപ തെരഞ്ഞെടുപ്പ് വിജയവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസനമായിരിക്കും പ്രധാന മാനദണ്ഡമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രുര കോവിഡ് നിയന്ത്രണത്തിന് നടപ്പാക്കിയ ജനതാ കർഫ്യൂ മുതൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്കുവരെ ലഭിച്ച അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിച്ചത് പ്രകടമായ രാഷ്ട്രീയം പുറത്ത് കാണിക്കാത്ത വോട്ടർമാരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും പിന്തുണയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെ വിജയത്തിലെത്തിച്ചത്

രാജ്യത്തിന്റെ മത്സരക്ഷമതയും സ്വയം പര്യാപ്ത ഭാരതം എന്ന പ്രതീക്ഷയുടെ പൂർത്തീകരണവും ഇതുവഴി യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ആഗോള മത്സരക്ഷമത ഉറപ്പാക്കാനും വൻതോതിൽ നിക്ഷേപം ആകർഷിക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാനും പദ്ധതി സഹായകമാകുമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉല്പാദനാധിഷ്ഠിത പ്രോത്സാഹന പദ്ധതിയെ ട്വിറ്ററിൽ സ്വാഗതം ചെയ്തു

കണക്ടിവിറ്റി നാവിക സഹകരണം വ്യാപാര വാണിജ്യം വിദ്യാഭ്യാസം ശേഷി വർദ്ധന തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ അവലോകനം ചെയ്യും കോവിഡാനന്തര സാമ്പത്തിക വീണ്ടെടുപ്പും അസിയാൻ ഇന്ത്യ കർമ്മ പരിപാടിയും ഉച്ചകോടിയിൽ ചർച്ചയാകും

രാജകുടുംബാംഗങ്ങളെയും ബഹ്റിൻ ജനതയെയും പ്രധാനമന്ത്രി ദുഃഖം അറിയിച്ചു

ബഹ്റിനിൽ ഒരാഴ്ചത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹ്റിൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചിച്ചു മലയാളികളടക്കം ഇന്ത്യൻ സമൂഹത്തോട് പ്രത്യേക കരുതൽ കാണിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു എണ്ണ വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ മറ്റ് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തി രാജ്യത്തെ വികസനത്തിലേക്കും നവീകരണത്തിലേക്കും നയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിർണ്ണായകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ആഗോള തലത്തിൽ ഏകോപിപ്പിക്കുന്ന ലോകാരോഗ്യ സംഘടനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു കോവിഡ് സാഹചര്യത്തിൽ മറ്റ് രോഗങ്ങൾക്കെതിരെയും നടത്തുന്ന പോരാട്ടത്തിൽ കുറവ് ഉണ്ടാകരുതെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രസ് അഥാനം ഗബ്രിയേസസുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു വികസ്വര രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ലോകാരോഗ്യ സംഘടനയുടെ പ്രാധാന്യം നരേന്ദ്രമോദി എടുത്തുപറഞ്ഞു

ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം അഞ്ച് ലക്ഷം കവിഞ്ഞു

രും മനുഷ്യരാശിയുടെ പേടിസ്വപ്നമായ കോവിഡിനെ ധൈര്യമായി നേരിട്ട് ശുഭ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെന്ന് ചലച്ചിത്ര താരം കെ

വിജ്ഞാപനം വരുന്നതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ഇന്ന് തുടങ്ങുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും നടപടിക്രമങ്ങൾ ഒരേ സമയം ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ വരണാധികാരിക്ക് മുന്നിൽ പത്രിക നൽകാൻ പ്രവേശനം അനുവദിക്കൂ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ വരണാധികാരികൾക്ക് അധികാരമുണ്ടായിരിക്കും രംഭ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെ പരിധി സംബന്ധിച്ച് സെക്രട്ടറി തലത്തിൽ തീരുമാനമെടുക്കണമെന്ന് കാണിച്ച് പൊതു ഭരണവകുപ്പ് ഉത്തരവ് ഇറക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ ഫയലുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയക്കുന്നത് ഒഴിവാക്കാനാണ് നടപടി രുര കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ഡിജിറ്റൽ പ്രക്ഷേപണ സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് എളമരം കരീം എം പി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർക്ക് കത്ത് നൽകി വടക്കൻ ജില്ലകളിൽ ശ്രോതാക്കൾക്ക് പരിപാടികൾ ആസ്വദിക്കാൻ ഡിജിറ്റൽ സംവിധാനം പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം കത്തിൽ പറഞ്ഞു രും കാസർകോട്ടെ കേരള കേന്ദ്ര സർവ്വകലാശാലാ തിരുവല്ലാ കേന്ദ്രത്തിലെ നിയമ പഠന വിഭാഗം വയനാട് ജില്ലയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഭരണഘടനാ കർത്തവ്യ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിട്ടു തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ പ്രിൻസിപ്പൽ ടെസ്സി മാത്യു പരിപാടി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു സർവ്വകലാശാല നിയമ പഠന വിഭാഗം മേധാവി ഡോ

ഐ ജയശങ്കർ അധ്യക്ഷനായിരുന്നു ദ്ദേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കൊച്ചിയിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു രും സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ എം സി കമറുദ്ദീൻ എം എൽ എയുടെ ജാമ്യാപേക്ഷയിൽ ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും രണ്ട് ദിവസത്തെ പൊലീസ് കസ്റ്റഡി കഴിഞ്ഞ് ഇന്നലെ കമറുദ്ദീനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു കിട്ടണമെന്ന അന്വേഷണ സംഘത്തിന്റെ ഹർജി കോടതി പരിഗണിച്ചില്ല രുഭ മോദി ഗവൺമെന്റിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലും ഉപ തെരഞ്ഞെടുപ്പുകളിലും പ്രകടമായതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം